വരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ചൈന അടച്ച് പൂട്ടലിലേക്ക്

ഒഡീഷ എഫ് സി യെ നേരിടും

ന്യൂഡൽഹിയിൽ രണ്ടാമത് ദേശീയ യുവജന പാർലമെന്റ് മേളയുടെ സമാപന സമ്മേളനം വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി

രാജ്യത്തിന്റെ ഭാവി നിർണയിക്കാൻ യുവാക്കൾ മുന്നോട്ടുവരണമെന്നും ശ്രീ ന്രേന്ദ്രമോദി ആവശ്യപ്പെട്ടു മികച്ച രാഷ്ട്രീയ പ്രവർത്ത്കരാകാൻ യുവാക്കളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി കുടുംബവാഴ്ചയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയം ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണെന്നും അതിനെ വേരോടെ പിഴുതെറിയണമെന്നും പറഞ്ഞു യുവാക്കളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച് അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനായി ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം കേന്ദ്ര സർക്കാരിന്റെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം മികച്ച വ്യക്തികളുടെ വികാസത്തിനും അതിലൂടെ രാജ്യത്തിന്റെ വികസനത്തിനും ഊന്നൽ നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു മേളയിലെ ജേതാക്കളെയും അവസാന പാനലിൽ ഉൾപ്പെട്ടവരെയും പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പ്രശംസിച്ചു ഒന്നാം സ്ഥാനം നേടിയ ഉത്തർപ്രദേശിൽ നിന്നുള്ള മുദിത മിശ്രയുടെ ഇന്ത്യ വീണ്ടും ഉയിർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രസംഗം പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു ജേതാക്കളുടെയും അവസാന പാനലിൽ എത്തിയവരുടെയും പ്രസംഗങ്ങളും ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ദേശസ്നേഹം ഊട്ടിയുറപ്പിക്കാനുള്ള പരിപാടികളാണ് രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്നത്

ബംഗ്ലാദേശിന്റെ കര നാവിക വായുപ സേനാംഗങ്ങൾ ഉൾപ്പെട്ടതാണ് സംഘം ഇന്ത്യൻ വായുസ്ന്നയുടെ പ്രത്യേക വിമാനത്തിലാണ് ഇന്നലെ ഇവർ ധാക്കയിൽ ്രിന്ന് തിരിച്ചത്

പ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസിയ്ക്കെഴുതിയ കത്തിലാണ് വൈസ് പ്രസിഡന്റിന്റെ പരാമർശം

ഭരണഘടനയനുസരിച്ചോ ജനതാൽപര്യ പ്രകാരമോ ഇംപീച്ച്മെന്റ് ഒരു പരിഹാര നടപടിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു

മന്ത്രാലയത്തിന്റെ സ്വതന്ത്ര ചുമതലയുള്ള് മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എം പി മാരും മന്ത്രാലയത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു

നഗരങ്ങളിലൂടെയുള്ള യാത്രകൾക്കും കർശന വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് യൂദ്ധകാലാടിസ്ഥാനത്തിൽ കർശനമായ കോവിഡ് പ്രതിരോധി നട്പടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ചൈന

അന്താരാഷ്ട്ര ഭീകര പ്രവർത്തനങ്ങൾ വരുത്തുന്ന ഭീഷണികൾ എന്ന വിഷയത്തിൽ ഐകൃരാഷ്ട്രസഭയുടെ സുരക്ഷാസമിതിയുടെ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഏറ്റവും കുറഞ്ഞ പ്രീമിയം നിരക്കിൽ രാജൃമെമ്പാടുമുള്ള കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്

മൊയ്തീൻ അനിൽ അക്കരയുടെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി

ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം സഭ നിർത്തിപ്പിച്ചു ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തരി പ്രിമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി

കണക്കാക്കിയാണ് കിഫ്ബി പദ്ധതികൾ ഏറ്റെടുക്കുന്നതെന്നും നഷ്ട സാധ്യതയുള്ള പദ്ധതികൾ ഏറ്റെടുക്കാറില്ലെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു

എസ് എല്ലിൽ ഇന്ന് ചെന്നൈയിൻ എഫ് സി ഒഡീഷ എഫ് സിയെ നേരിടും